നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു തുലാവർഷം കേരളത്തിൽ ശക്തമായി

രാവിലെ സ്പീക്കർ പി

മുൻ ഗവൺമെന്റുകളുടെ ഭരണകാലത്ത് അഴിമതിയും വഞ്ചനയും നട ത്തിയവർക്കെതിരെ നടപടികൾ ഇനിയും തുടരുമെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി അറിയിച്ചു കഴിഞ്ഞ ദശകങ്ങളിൽ രാജ്യത്ത് രൂപപ്പെട്ട തെറ്റായ പ്രവണതകൾ തുടച്ചുമാറ്റാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പൂനെയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു കുറ്റക്കാരായ പല പ്രമുഖർക്കുമെതിരെ നടപടിയെടുക്കാൻ അന്നത്തെ ഗവൺമെന്റുകൾക്ക് ധൈര്യമില്ലായിരുന്നു ഇന്ന് അഴിമതിക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു വരികയാണെന്ന് പ്രധാനമന്ത്രി വൃക്തമാക്കി ് ് ് ് ് ് സംസ്ഥാനത്ത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെ ടുപ്പ് പ്രചാരണത്തിന് ഇനി രണ്ടു ദിവസം മാത്രം മുന്നണികളും സ്ഥാനാർത്ഥി കളും അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ് അഞ്ചിടങ്ങളിലും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളും കക്ഷിരഹി തരും രംഗത്തുണ്ട് സംസ്ഥാന ദേശീയ നേതാക്കൾ മുന്നണികളുടെ പ്രചാര ണത്തിന് നേതൃത്വം നൽകി വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എൽ ഡി എഫ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മന്ത്രിമാരും രംഗത്തുണ്ട് യു ഡി എഫിനുവേണ്ടി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തലയും എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയും പ്രധാനമായും മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി വരികയാണ്

കേന്ദ്ര സഹമന്ത്രി വി മുര ളീധരൻ അവസാന ദിവസങ്ങളിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ എത്തുന്നുണ്ട് ജനകീയ വിഷയങ്ങളിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഇടതുമുന്നണി ഭരണത്തെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ വിശ്വാസം വിഷയമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ അരൂരിൽ പറഞ്ഞു

് സംസ്ഥാനത്ത് അഞ്ച് സീറ്റിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പു കളും തീവ്ര ഹിന്ദുത്പത്തിനും ഫാസിസത്തിനുമെതിരായ പോരാട്ടമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു മഞ്ചേ ശ്വരം ഉപ്പളയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കു കയായിരുന്നു അദ്ദേഹം

് ് ് ് ് സംസ്ഥാനത്തെ സംഘപരിവാർ പ്രവർത്തകരുടെ മുഴുവൻ അപ കട മരണങ്ങളും ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു കുള ത്തൂരിലെ ബി ജെ പി നേതാവ് മോഹനചന്ദ്രൻ വാഹനാപകടത്തിലല്ല മരി ച്ചതെന്നും അത് കൊലപാതകമായിരുന്നുവെന്നും ഒരു തീവ്രവാദ സംഘ ടന വെളിപ്പെടുത്തിയതിനോട് കാസർകോട് പെർളയിൽ പ്രതികരിക്കുകയാ യിരുന്നു കുമ്മനം

വേണുഗോപാൽ അരൂരിൽ പറഞ്ഞു

ഇത് ജാതി വിദേഷത്തിനിടയാക്കും സമദൂരം ഉപേക്ഷിച്ച് ശരിദൂരം സ്വീകരിച്ച എൻ എസ് എസ് നേതൃത്വം എൽ ഡി എഫ് ഗവൺമെന്റിനെ താഴെയിറക്കാനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റ പ്പെടുത്തി

നൽകാൻ വൈസ് ചാൻസലറോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടു അടിയന്തരമായി ഇതു സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് ചാൻസലർ കൂടിയായ ഗവർണർ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസിനോട് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ വിശദീകരണം തേടി യത് ചെന്നിത്തല നൽകിയ കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും കൈമാ റിയിട്ടുണ്ട് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കൊച്ചിയിൽ എത്തിയ ഡച്ച് രാജാവ് വില്യം അലക്സാണ്ടർ രജ്ഞി മാക്സിമ എന്നിവരുമായി മുഖ്യ മന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ ഡച്ച് നിക്ഷേ പത്തിന് ഗവൺമെന്റ് എല്ലാവിധ സൌകര്യങ്ങളും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൃഷി ജലവിനിയോഗം തുറമുഖം ഉൾനാടൻ ജലഗതാഗതം ആരോഗ്യം തുടങ്ങി ഒൻപത് മേഖലകൾ സംസ്ഥാനം തെരഞ്ഞെടുത്തിട്ടു ണ്ടെന്ന് മുഖൃമന്ത്രി പറഞ്ഞു രാജ ദമ്പതിമാർ ഇന്ന് ആലപ്പുഴ സന്ദർശിക്കും തുടർന്ന് കൊച്ചിയിൽ തിരിച്ചെത്തി വൈകിട്ട് പ്രത്യേക വിമാനത്തിൽ ആംസ്റ്റർഡാമിലേക്ക് മടങ്ങും

ഇതോടെ ഏഴ് ഉടമകൾക്ക് ഈ തുക ലഭിക്കും

നാലു പേർ ഒഴികെ എല്ലാവർക്കും പ്രമാണത്തിൽ കാണിച്ച വില ലഭിക്കും

ആൽഫ വെഞ്ചേഴ്സ് ഉടമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പ്രഖ്യാപനം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി

പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും പ്രധാന പ്രതി ജോളിയെ ഇന്നലെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു

പ്രമുഖ അഭിഭാഷകരായ കപിൽ സിബലും പ്രശാന്ത് ഭൂഷണും ആക്ഷൻ കമ്മിറ്റിക്കുവേണ്ടി കോടതിയിൽ ഹാജരാകും

തുലാവർഷം കേരളത്തിൽ ശക്തമായി തിങ്കളാഴ്ച വരെ വ്യാപ കമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്ര ത്തിന്റെ വിലയിരുത്തൽ കൊല്ലം മുതൽ വയനാട് വരെ പത്ത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോട്ടയം എറ ണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ നാളെയും ആറു ജില്ലകളിൽ മറ്റ ന്നാളും യെല്ലോ അലർട്ടായിരിക്കും ശക്തമായ മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ നാലു ഷട്ടറുകൾ രാവിലെ തുറക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനി യർ അറിയിച്ചു

വാളയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഇന്നലെ തുറന്നിരുന്നു

കൃാംപ് പ്രവർത്തിക്കുന്നതിനാൽ സ്കൂളിന് ഇന്ന് അവധിയായിരിക്കും

ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

ശാകിബുൽ ഹസനാണ് ക്യാപ്റ്റൻ പരമ്പരയിലെ ആദ്യമത്സരം അടുത്ത മാസം മൂന്നിന് ഡൽഹി യിലാണ്

വെച്ച വോളിബോൾ ഹാൻഡ് ബോൾ മത്സരങ്ങൾ ഇന്ന് നടക്കും വനിതാ വിഭാഗം ഫുട്ബോളിൽ കണ്ണൂർ ജേതാക്കളായി സീനിയർആൺകുട്ടികളുടെ കബഡിയിൽ കാസർഗോഡ് വിജയിച്ചു സീനിയർ പെൺകുട്ടികളിൽ തൃശൂർ ജേതാക്കളായി സീനിയർ ആൺ കുട്ടികളുടെ ഫുട്ബോളിൽ മലപ്പുറം ചാമ്പ്യൻമാരായി സംസ്ഥാന ടീം സെലക്ഷൻ ഇന്ന് ആരംഭിക്കും

കോട്ടപ്പുറം കായലിൽ നടക്കും പൊന്നാനി ബീയം കായലിൽ നടത്തേണ്ടി യിരുന്ന മത്സരങ്ങളാണ് കോട്ടപ്പുറത്തേക്ക് മാറ്റിയത്

ഭിക്കും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും മുവ്വാറ്റുപുഴ ഫിലിം സൊസൈ റ്റിയും സംയുക്തമായാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് വൈകിട്ട് സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ശിവ പരിപാടി ഉദ്ഘാടനം ചെയ്യും

ഇതനുസരിച്ച് ജില്ലയിലെ എട്ട് വില്ലേജുകളിൽ മാത്രമായി രിക്കും നിർമ്മാണപ്രവർത്തനങ്ങൾക്ക് എൻ ഒ സി നിർബന്ധമാക്കുന്നത്

പി കുറ്റപ്പെടുത്തി ജില്ലയെ ഒറ്റപ്പെടുത്തുന്ന ഉത്തരവ് മുഴുവനായി പിൻവലിക്കണമെന്നും ഭൂപതിവ് ചട്ടങ്ങൾ കാലാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്നും എം പി ആവശ്യപ്പെട്ടു

ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രതിനിധികൾ വയനാട് ജില്ല യിൽ പര്യടനം തുടങ്ങി

പ്രധാന ഭീഷണിയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ വിലയിരുത്തി ട മക്കളുടെ പേരിൽ സ്വത്ത് കൈമാറുന്ന മാതാപിതാക്കൾ സ്വന്തം പേരിലും കുറച്ച് വസ്തു സൂക്ഷിക്കണമെന്ന് കമ്മീഷൻ കൊല്ലത്ത് നിർദ്ദേശിച്ചു

സംസ്ഥാനത്തെ ആദ്യ സർട്ടിഫിക്കറ്റ് അദാലത്ത് മാനന്തവാടിയിൽ സംഘ ടിപ്പിച്ചു സംസ്ഥാന ഐ ടി മിഷന്റെയും വകുപ്പുകളുടെയും അക്ഷയ കേന്ദ്ര ത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനത്ത് അദാലത്തുകൾ സംഘ ടിപ്പിക്കുന്നത്

വയനാട് പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ ഭൂമി നഷ്ടപ്പെട്ട വർക്കായി കള്ളാടി വാഴക്കാല എസ്റ്റേറ്റിൽ പതിനൊന്നേമുക്കാൽ ഏക്കർ ഭൂമി കണ്ടെത്തി

കരാറിൽ ഒപ്പുവെക്കുന്ന തിനെതിരെ കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നല്കിയതായി യൂണിയൻ ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു